അഞ്ച് ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലർട്ട് പിൻവലിച്ചു

ഹൈക്കോടതി സംസ്ഥാന് ശ്വൺമെന്റിനോട് വിശദീകരണം തേടി

ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറഞ്ഞ പോളിംഗ് വോട്ടെണ്ണൽ മറ്റന്നാൾ പുതിയ എം എൽ

ഇന്ത്യ ദക്ഷിണാഫ്രിക്കക്ക് എതിരായ പരമ്പര സ്വന്തമാക്കി മഴ സംസ്ഥാനത്തെ അഞ്ച് ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലർട്ടുകൾ പിൻവലിച്ചു ഇടുക്കി ജില്ലയിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത് പത്തനംതിട്ട മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ന് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ വിദഗ്ദ്ധരുടെ നിഗമനം എന്നാൽ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തീവ്രന്യൂനമർദ്ദമായി കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാനിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് കടൽ പ്രക്ഷുബ്പമായതിനാൽ മത്സ്യത്തൊഴിലാളികൾ മൂന്ന് ദിവസത്തേക്ക് കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്

വെള്ളര്ക്കട്ട് പ്രശ്നം കൈകാര്യം ചെയ്തതിൽ വീഴ്ച വരുത്തിയ ഇത്തര്ത്തിലുള്ള ഒരു നഗരസഭ എന്തിനെന്നും നഗരസഭ പിരിച്ചുവിടാത്ത്തെന്താണെന്നും ഹൈക്കോടതി ആരാഞ്ഞു വിഷയത്തിൽ ഗവൺമെന്റ് വിശദീകരണം നാളെ നൽകണമെന്നും ഹൈക്കോടതി പറഞ്ഞു എന്നാൽ വെള്ളക്കെട്ട് പ്രശ്നത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നതായി കൊച്ചി മേയർ മാധ്യമങ്ങളോട് പറഞ്ഞു

ഇന്നലെ കനത്ത മഴയിൽ വെള്ളക്കെട്ട് ഉണ്ടായതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആകാശവാണി ലേഖകൻ എൻ

ജയചന്ദ്രൻ

ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ അധ്യക്ഷതയിൽ പ്രച്ചേർന്ന ദേശീയ ദുരന്ത നിവാരണ സേനയുടെ യോഗത്തിലാണ് നിർദേശം

ശക്തമായ ത്രികോണ മത്സരം നടന്നയിടങ്ങളിൽ പോലും പോളിംഗ് കുറഞ്ഞു കനത്ത മഴ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടാക്കിയെ ന്നാണ് വിലയിരുത്തൽ

കഴിഞ്ഞ ലോക്സഭാ തെരെഞ്ഞെടുപ്പിനേക്കാളും ഉയർന്ന പോളിങ് ശതമാനമാണ് കോന്നിയിൽ ഇത്തവണ രേഖപ്പെടുത്തിയത് വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സ്ട്രോംഗ് റൂമിൽ കനത്ത സുരക്ഷയിലാണ് മറ്റന്നാൾ രാവിലെ ബന്ധപ്പെട്ട കക്ഷികളുടെ സാന്നിധ്യത്തിൽ യന്ത്രങ്ങൾ പുറത്തെടുത്ത് വോട്ടെണ്ണും ഒമ്പതു മണിയോടെ ആദ്യഫലം പുറത്തു വരും

നിയമസഭാ മന്ദിരത്തിൽ രാവിലെ ഒൻപതിനാണ് സത്യപ്രതിജ്ഞ

അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സഭ നിയമ നിർമ്മാണത്തിലേക്ക് കടക്കും

കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന പദ്ധതി പിന്നീട് മുഴുവൻ ജില്ലകളിലും വ്യാപിപ്പിക്കും പദ്ധതിയെ കുറിച്ച് ഫിഷറീസ് വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശ്രീലു

എസ് ആകാശവാണിയോട്

സംസ്ഥാനത്തെ എല്ലാ പ്രദേശങ്ങളിലെയും ദൌതിക അടിസ്ഥാന സൌകര്യങ്ങളെയും വിഭവങ്ങളെയും പ്രകൃതി കണ്ടെത്തുകയാണ് ലക്ഷ്യം

ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനായി ശ്രീ

അബ്ദുള്ളക്കുട്ടിയെ തിരഞ്ഞെടുത്തായി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പി

കണ്ണൂരിൽ നിന്നൂള്ള കോൺഗ്രസ് നേതാവായിരുന്ന അബ്ദുള്ളകുട്ടി അടുത്ത കാലത്താണ് ബി ജെ

എം നെ പ്രതിനിധീകരിച്ച് ലോക്സഭാംഗവുമായിരുന്നു

വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ

കൊലയ്ക്ക് ശേഷം ജോളി കൈവശപ്പെടുത്തിയ സിലിയുടെ സ്വർണവും കൊലപാതകത്തിന് ഉപയോഗിച്ച സയനൈഡിന്റെ കുപ്പിയും കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം ഹാമർ മരണം ഹാമർ തലയിൽ വീണ് വിദ്യാർത്ഥി മരിക്കാനിടയായ സംഭവത്തിൽ കേരള അത്ലറ്റിക് അസോസിയേഷന്റെ ഭാരവാഹികൾക്കെതിരെ പൊലീസ് കേസെടുത്തു മനപൂർവമല്ലാത്തു നരഹത്യക്കാണ് കേസ് ഒക്ടോബർ നാലിന് പാലായിൽ തുടങ്ങിയ് സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ വോളന്റിയറായിരുക്കു അഫീൽ ജോൺസണ് ഹാമർ തലയിൽ വീണ് ഗുരുതരമായി പ്രിക്കേറ്റിരുന്നു കോട്ടയം മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ചിക്ടിൽയിലായിരുന്ന അഫീൽ ജോൺസൺ ഇന്നലെയാണ് മരിച്ചത്

മൂന്നു മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ എല്ലാ മത്സരത്തിലും വ്യക്തമായ മേൽക്കൈയോടെയാണ് ഗാന്ധിമണ്ഡേല ട്രോഫി ഇന്ത്യ കരസ്ഥമാക്കിയത്

ഈ നേട്ടം സ്വന്തമാക്കുന്ന കൃാപ്റ്റനെന്ന ബഹുമതി വിരാട് കോഹ്ലി സ്വന്തമാക്കി

എ അസീസ് സ്റ്റേഡിയത്തിൽ രാത്രി ഏഴിനാണ് മത്സരം ഏഷ്യൻ ഫുട്ബാൾ കോൺഫെഡറേഷന്റെ അംഗീകാരത്തോടെ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ആദ്യ കേരള ടീമാണ് ഗോകുലം ഡ്യൂറന്റ്ക്കപ്പിലെ ടോപ് സ്കോററർ മാർക്കസ് ജോസഫിന്റെ അഭാവത്തിൽ ് ഇർഷാദാണ് ഗോകുലം കേരളയെ നയിക്കുന്നത്

സ്വിസ് ഇൻഡോറിൽ പുരുഷ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ജർമനിയുടെ പീറ്റർ ഗോജോവിസ്കിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ഫെഡറർ തകർത്തത്